ഗുജറാത്തിലെ സ്ഥ്രാർഷ്ട്ര തീരത്ത് വായു ചുഴലിക്കാറ്റിന്റെ ്സാന്നിദ്ധ്യം അനുഭവപ്പെട്ടു തുടങ്ങി

അരുണാചൽ പ്രദേശിൽ തകർന്ന എ

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യാ ന്യൂസ്ലാന്റ് മത്സരം മഴമൂലം വൈകി

രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായതിനുശ്ശേഷമുള്ള ശ്രീ

പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ എട്ട് അംഗരാഷ്ട്രങ്ങളിലെ രാഷ്ട്രതലവന്മാർ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നു

ഉച്ചകോടിക്കായി ബിഷ്കെക്കിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിംഗുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ഇരു നേതാക്കന്മാരും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള എല്ലാ വശങ്ങളും ചർച്ച ചെയ്തതായി വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തും ഇന്ത്യ കിർഗ്ഗീസ് ബിസിനസ്സ് സമ്മേളനം നരേന്ദ്രമോദിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

ചൈനയുടെ നേതൃത്വത്തിലുള്ള എട്ട് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങളിലെ കൂട്ടായ്മയാണ് ഷാങ്ഹായ് സഹകരണ സംഘടന

ഗുജറാത്തിൽ ഇന്ന് ഉച്ച തിരിഞ്ഞ് വായു ചുഴലിക്കാറ്റിന്റെ സാന്നിദ്ധ്യം അനുഭവപ്പെട്ടുതുടങ്ങി സൌരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിൽ ശക്തീയായ ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും ആരംഭിച്ചിട്ടുണ്ട്

ഗുജറാത്തിന്റെ തീരമേഖലകളായ പോർബന്ധർ ദാരക് ഗ്നീർ സോമനാഥ് പ്രദേശങ്ങളിലൂടെ കാറ്റ് കടന്നുപോക്ട്ട്ട്മെന്നായിരുന്നു മുന്നറിയിപ്പ്

എഫ് ഡയറക്ടർ ജനറൽ എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ആർ ഒ

ഗഗൻയാൻ പദ്ധതിയുടെ തുടർച്ചയായി ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ സഹകരണം കൂടാതെയാണ് ഈ സ്വപ്ന പദ്ധതി ഏറ്റെടുക്കുന്നതെന്ന് ഡോ

ധനകാര്യ മൂലധന വിപണികളിലെ പ്രതിനിധികളുമായി ധനമന്ത്രി ന്യൂഡൽഹിയിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് തുടർന്ന് അടിസ്ഥാന സൌകര്യ മേഖലയിലേയും കാലാവസ്ഥാ വ്യതിയാന രംഗത്തേയൂം വിദഗ്ധരുമായി ചർച്ച നടത്തും നേരത്തു കൃഷി വൃവസായം വാണിജൃം എന്നീ രംഗത്തെ പ്രതിനിധിക്കളുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂലധന വിപണി ഉൾപ്പെടെയുള്ള സാമ്പത്തികൃമേഖ്ലയിലെ പ്രതിനിധികൾ നിരവധി നിർദ്ദേശങ്ങൾ ധനമന്ത്രിക്ക് ്സ്കൂർപ്പിച്ചിട്ടുണ്ട്

ജെ പി വൻവിജയം നേടിയെങ്കിലും പാർട്ടി ഇനിയും ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ടെന്ന് ബി ജെ പി അധൃക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പറഞ്ഞു ന്യൂഡൽഹിയിൽ പാർട്ടി ദേശീയ ഭാരവാഹികളുടേയും സംസ്ഥാന അധൃക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ പ്രദേശങ്ങളിലേക്കും മേഖലകളിലേയ്ക്കും ബി ജെ പി വേരുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ

തെരഞ്ഞെട്ടുപ്പിലെ വൻവിജയം പാർട്ടി പ്രവർത്തകർക്ക് ശ്രീ അമിത്ഷാ സ്മർപ്പിച്ചിരിക്കുകയാണെന്ന് യോഗത്തിനുശേഷം ചേർന്ന് പ്വാർത്താസമ്മേളനത്തിൽ ബി ജെ പി ജനറൽ സെക്രട്ടറി ഭൂപ്പേന്ദ്രിയാദ്ധ് പറഞ്ഞു

എഫ് ഡയറക്ടർ ജനറൽ ആർ

രണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ അഞ്ച് അർദ്ധസൈനികർ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിക്കുകയുണ്ടായി

ഒരു റിപ്പോർട്ട് നിർമ്മാണ വാർത്താവിനിമയ ധനകാര്യമേഖലകളിൽ കാര്യമായ വരുമാന വർദ്ധനയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്

എൻ ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പദ്യ്യുന്നു്

അതിർത്തി വഴി വ്യാജ കറൻസി മയക്കുമരുന്ന് കന്നുകാലികൾ തുടങ്ങിയവയുടെ കള്ളക്കടത്ത് തടയുന്നതിനുള്ള നടപടികൾ മുഖൃ ചർച്ചാ വിഷയമായി ഇരു രാജ്യങ്ങളുടേയും അതിർത്തി സുരക്ഷാ സേനകൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളും പ്രതിനിധി സംഘം ചർച്ചു ചെയ്തു

സമ്മേളനത്തിൽ ഗവൺമെന്റിന്റെ മൂന്ന് പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയോജന ചെറുകിട പരിമിത കർഷകർക്കുള്ള പെൻഷൻ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായി

എം കിസാൻ പദ്ധതിക്ക് അർഹതരായ കർഷകരേയും കുടുംബാംഗങ്ങളേയും അംഗങ്ങളാക്കുന്ന പ്രക്രിയ സമയബന്ധിതമായി ത്വരിതപ്പെടുത്താൻ സ്റ്റ്സ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ കൃഷിമന്ത്രിമാരോട്ട് ശ്രീ തോമർ നിർദ്ദേശിച്ചു ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നവർക്ക് അവ്ര്യുട്ടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കാൻ ഇത് സ്ഹായകമാകും എന്ന് അദ്ദേഹം പറഞ്ഞു

നേതാവും രാജ്യസഭാംഗവുമായ ഡോ

റാവു രാജ്യസഭയിലും ഖമ്മാഖിൽ നിന്നുള്ള പാർലമെന്റംഗമായ എൻ നേശ്വർ റാവു ലോക്സഭയിലും പാർട്ടിയുടെ കക്ഷി നേതാക്കാളാവും ഹൈദരാബാദിൽ ഇന്ന് ചേർന്ന സംസ്ഥാന എം

മാരുടെ യോഗത്തിലാണ് ഇരുവരേയും ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്തത്

ലോകകപ്പ് ക്രിക്കറ്റിൽ നോട്ടിംഗ് ഹാമിൽ നടക്കാനിരുന്ന ഇന്ത്യ ന്യൂസിലന്റ് മത്സരം മഴമൂലം വൈകി നോട്ടിംഗ്ഹാമിൽ മൂന്ന് നാല് ദിവസമായി പെയ്യുന്ന കനത്ത മഴ മൂലം പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ ഫലം കാണാതെ അവസാനിപ്പിക്കേണ്ടിവന്നിട്ടുണ്ട്

പ്രിമാനത്താവളം ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണ് ഇക്കാര്യം നേരത്തെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നിരാണ്ണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള ശുപാർശ കേന്ദ്രമന്ത്രി സഭ അടുത്തമാസം പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്